ആരോഗൃമന്ത്രാലയം മാസ്ക് ഉപയോഗം കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം

എന്നാൽ പൊതുസ്ഥലങ്ങളിലെ മാസ്ക് ഉപയോഗം കർശനമായി പാലിക്കേണ്ടതുണ്ട് മേഖലകൾക്ക് പുറത്തും പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും മന്ത്രാലയം വൃക്തമാക്കി ലോക് ഡൌൺ മൂലം നേടിയ ഗുണഫലങ്ങൾ നിലനിർത്താൻ ഉത്തരവാദിത്തത്തോടെ പെരുമാറാൻ രാജ്യത്തെ പൌരന്മാർ ശ്രദ്ധിക്കണമെന്നും മന്ത്രാലയ വക്താവ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതോടെ സാമൂഹിക് അകലം അടക്കമുള്ളസ്പു പ്പാലിക്കാൻ ജനങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ രോഗവ്യാപന് സാധ്യത വർധിക്കാൻ ഇടയുണ്ടെന്നും മന്ത്രാലയം മുന്നുറിയിപ്പ് നൽകി

രാജ്യത്തെ പൊലീസും സുരക്ഷാ സേനയും ജോലി സമയത്ത് പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ സംബന്ധിച്ച മാർഗ്ഗ നിർദ്ദേശങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് കോവിഡ് മഹാമാരിക്കെതിരെ അംഗരാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് സംബന്ധിച്ച നിർണ്ണായക തീരുമാനങ്ങൾ ഉച്ചകോടിയിൽ നടന്നു

ഐക്യരാഷ്ട്ര സഭയ്ക്ക് ശേഷം ഏറ്റവുമധികം ലോകരാഷ്ട്രങ്ങൾ അംഗങ്ങളായുള്ള സമിതിയാണ് ചേരിചേരാ പ്രസ്ഥാനം പ്രധാനമന്ത്രിയായ ശേഷം ഇതാദ്യമായാണ് ശ്രീ മോദി ചേരിചേരാ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്

ലോകാരോഗ്യ സംഘടനയും ലോകമെമ്പാടുമുള്ള ജനങ്ങളും എല്ലാ ഇന്ത്യാക്കാരും ഇത് അംഗീകരിച്ചതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

തുടർച്ചയായ രണ്ടാം ദിവസമാണ് സംസ്ഥാനത്ത് പുതിയ കോവിഡ് റിപ്പോർട്ട് കേസുകൾ ചെയ്യാതിരിക്കുന്നത്

ജമ്മു കശ്മീരിലെ് രജൌരി ജില്ലയിൽപ്പെട്ട നൌഷേര മഞ്ജുക്കോട്ട മേഖലകളിലാ്ന്ന്പാക്ക് സേന ഇന്ന് വൈകിട്ട് വെടി നിർത്തൽ ലംഘിച്ചത് ജനവാസ മേഖലകൾ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പാക്ട് സേന പ്രകോപനമൊന്നും കൂടാതെ വെടിയുതിർക്കുകയായിരു്ന്നു വെന്ന് പ്രതിരോധ വക്താവ് അറിയിച്ചു ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു

ഗിൽഗിത് പാക്കിസ്ഥാൻ മേഖല ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അവിടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാക്കിസ്ഥാൻ സുപ്രീം കോടതിയുടെ പരിധിയിൽ വരില്ലെന്നും വിദേശകാരൃ മന്ത്രാലയം വ്യക്തമാക്കി ഗിൽഗിത് പാക്കിസ്ഥാനുമായി ബന്ധപ്പെട്ട് പാക്ക് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു ഗിൽഗിത് ബാൽട്ടിസ്ഥാൻ ഉൾപ്പെടെ ജമ്മു കശ്മീരിർ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ കീഴിൽ വരുന്ന മുഴുവൻ ഭൂപ്രദേശങ്ങളും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും വ്യക്തമാക്കി മന്ത്രാലയം അനധികൃതമായോ ബലപ്രയോഗത്തിലൂടെയോ കൈവശമാക്കിയ ഭൂപ്രദേശങ്ങൾക്ക് മേൽ പാക്ക് ഭരണകൂടത്തിനോ നീതിന്യായ വൃവസ്ഥക്കോ അധികാരമില്ലെന്നും കേന്ദ്ര സർക്കാർ ഓർമ്മിപ്പിച്ചു

ഷ്ട്രാൻസിലും ജർമ്മനിയിലും ഒന്നര ലക്ഷത്തിലധികം പ്പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്

ബംഗ്ലാദേശിൽ കോവിഡ് ബാധിതരുടെ എണ്ണം പതിനായിരം കടന്നു

രാജ്യത്ത് ലോക്ക് ഡൌൺ നിലവിൽ വന്നതിനുശേഷം ഇത് ആദ്യമായാണ് അദ്ദേഹം സെക്രട്ടറിയേറ്റ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയത് വിശദാംശങ്ങളുമായി സോഫിയ വോയിസ് ചെലവ് ചുരുക്കൽ പദ്ധതിയുൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഒരു മണിക്കൂർ നീണ്ട യോഗത്തിൽ ്ചർച്ച ചെയ്തു

പുതിയ വാഹനങ്ങൾ വാങ്ങുന്നത് നീട്ടി വെയ്ക്കുക അന്താരാഷ്ട്ര യാത്രകൾ ജീവനക്കാർക്കുള്ള പരിശീലനം എന്നിവ വെട്ടി കുറയ്ക്കുക തുടങ്ങി നിരവധി നടപടികളാണ് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് സർക്കാരിന്റെ് വരവ് കുറഞ്ഞ പശ്ചാത്തുലത്തിലും സാമ്പത്തിക മാന്ദ്യത്തിന്റെ വെല്ലുവിളി മൂലവും ചില്ലുവ് കുറയ്ക്കാനുളള കർശന നടപടികൾ സ്വീകരിക്കേണ്ടത്യൂടിണ്ട്ടുണ്ട് ശ്രീ നായിഡു ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു

ബ്ലഡ് ബാങ്കുകളിൽ രക്ത ലഭ്യത ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റുള്ളവരുടെ ് ജീവൻ രക്ഷിക്കുന്നത് ലോകത്തോടുള്ള സേവനമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു